സിന്ധു ഇന്ന് ജപ്പാന്റെ നൊസോമി ഒക്കുഹാരയെ നേരിടും പ്പാസ്റ്റിക് മാലിനൃങ്ങൾക്കെതിരെ രാജ്യം ഒറ്റക്കെട്ടായി അണിചേരണ മെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹാനം ചെയ്തു ദീപാവലി ആകു മ്പോഴേക്കും പ്ലാസ്റ്റിക് മുക്ത ഭാരതമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയണമെന്ന് പ്രധാനമന്ത്രി പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാ ടിയായ മൻകി ബാത് ൽ പറഞ്ഞു

മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഓരോ വൃക്തിയും പ്രാധാന്യം കൊടു ക്കണമെന്നും സിംഗിൾ യൂസ് ഉൽപ്പന്നങ്ങൾ തിരസ്കരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ശ്രീകൃഷ്ണജയന്തി ആഘോഷ പശ്ചാത്തലത്തിൽ ശ്രീകൃഷ്ണനെയും മഹാത്മാഗാന്ധിയെയും താരതമൃം ചെയ്ത മോദി സാമൂഹൃശക്തിക്കും ജനങ്ങളുടെ ഐക്യത്തിനുമായി രൂപപ്പെട്ട വൃക്തിതമായിരുന്നു ശ്രീകൃ ഷ്ണന്റേതെന്നും നിസാർത്ഥ സേവനത്തിന്റെ മഹത്ഥമാണ് ഗാന്ധിജിയിലും ദർശിക്കാൻ കഴിയുന്നതെന്നും പറഞ്ഞു ദരിദ്രരെയും നിസ്സഹായരെയും വിശുന്നുവലഞ്ഞവരെയും പാർശ്വവ ത്കരിക്കപ്പെട്ടവരെയും രോഗികളെയും സേവിക്കുന്നതിൽ ആത്മാനന്ദം അനുഭവിച്ച ബാപ്പുജി പൂർണ്ണ സമർപ്പണ ഭാവത്തോടെ ഏവരും സേവന ത്തിനിറങ്ങണമെന്ന സന്ദേശമാണ് നൽകുന്നതെന്നും മോദി പറഞ്ഞു മൻകിബാത് മല്പയാളത്തിൽ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ രാത്രി എട്ടിന് പുനപ്രക്ഷേപണം ചെയ്യും

ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി ദർശനം നടത്തി അന്തരിച്ച മുൻ ധനമന്ത്രിയും മുതിർന്ന ബി

പി നേതാവുമായ അരുൺ ജെയ്റ്റ്ലിയുടെ സംസ്കാരം വൈകീട്ട് ന്യൂഡൽഹിയിലെ നിഗം ബോധ്ഘട്ടിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടത്തും രാവിലെ മുതൽ പാർട്ടി ആസ്ഥാനമായ ദീൻ ദയാൽ ഉപാധ്യായ മാർഗ്ഗിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതികദേഹത്തിൽ നിരവധിപേർ ആദരാജ്ഞ ലികൾ അർപ്പിച്ചു രണ്ടരയോടെ വിലാപയാത്രയായി നിഗംബോധ്ഘട്ടി ലേക്ക് കൊണ്ടുപോകും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായി ഡു ബി

പി അധ്യക്ഷൻ അമിത്ഷാ കോൺഗ്രസ് അധ്യക്ഷ സോണിയാ ഗാന്ധി മുൻ പ്രധാനമന്ത്രി ഡോ മൻമോഹൻ സിംഗ് ലോക്സഭാ സ്പീക്കർ ഓംബിർള തുടങ്ങി നിരവധി നേതാക്കൾ ഇന്നലെ സൌത്ത് ഡൽഹി കൈലാഷ് കോളനിയിലെ വസതിയിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചിരുന്നു ഇന്നലെ ബഹറിനിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രിയസഹപ്രവർത്തകനെ അനുസ്മ ജയ്റ്റിലിയുടെ ഭാര്യയെയും മകനെയും ടെലഫോണിൽ ബന്ധ രിച്ചു പ്പെട്ട് അദ്ദേഹം അനുശോചനം അറിയിച്ചു

സംസ്ഥാനത്തെ ഉരുൾപൊട്ടൽ സാധ്യതാം മേഖലകളിൽനിന്ന് ജന ങ്ങളെ ഒഴിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഉരുൾപൊട്ടലിന് സാധൃതയുള്ള പ്രദേശങ്ങൾ ശാസ്ത്രീയപഠനത്തിലൂടെ കണ്ടെത്തും ഇതിനായി സത്വര നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു ഉരുൾപൊട്ടൽ മേഖലയിൽ ശാസ്ത്രീയ പരിശോധന നടത്താൻ വിദഗ്ധ്യസംഘത്തെ നിയോഗിക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടി രുന്നു രാഹുൽ ഗ്രാന്ധി ചൊപ്പാഴ്ചയും ബുധനാഴ്ചയും വയനാട്ടിലെ പ്രളയബാധിത മേഖലകളിൽ സന്ദർശനം നടത്തും മാനന്ത വാടി സുൽത്താൻ ബത്തേരി കല്പറ്റ നിയോജക മണ്ഡലങ്ങളിലെ ദുരിത മേഖലകൾ അദ്ദേഹം നേരിൽ കാണുമെന്ന് യു

എഫ് ജില്ലാ കമ്മിറ്റി അറിയിച്ചു ഭീകരബന്ധം സംശയിച്ച് കൊച്ചിയിൽ പൊലീസ് കസ്റ്റഡിയിലെടു ത്ത തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശി അബ്ദുൽ ഖാദർ റഹീമിനെ ചോദ്യം ചെയ്യൽ തുടരുന്നു കേന്ദ്ര ഏജൻസിയാണ് ഇയാളെ ചോദ്യം ചെയ്യുന്ന ത് എറണാകുളം ജില്ലാ കോടതി സമുച്ചയത്തിൽനിന്നാണ് ഇയാളെയും ഒപ്പമുണ്ടായിരുന്ന യുവതിയെയും കസ്റ്റഡിയിലെടുത്തത് തൃശ്ശൂർ കൈപ്പമംഗലം കുരീക്കുഴിയിൽ സംശയകരമായ രീതിയിൽ കണ്ടെത്തിയത് മത്സ്യബന്ധന ബോട്ടുകളാണെന്ന് തീരദേശ പൊലീസ് അറിയിച്ചു ബോട്ടിലുണ്ടായിരുന്നവരെ ചോദ്യം ചെയ്തശേഷം വിട്ടയ ച്ചതായും സംഭവത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും പൊലീസ് പറഞ്ഞു തീവ്രവാദികൾ എത്തിയേക്കുമെന്ന ഭീഷണി നിലനിൽക്കുന്ന തിനിടെ ഇന്നലെ വൈകീട്ട് ഏഴോടെയാണ് വാസ്കോ ബീച്ച്മുതൽ മൂന്നു ബോട്ടുകൾ കണ്ടെത്തിയത് ഗവൺമെന്റ് ജീവനക്കാരും പെൻഷൻകാരും ഉൾപ്പെടെ ട്രഷറി അക്കൌണ്ട് ഉടമകൾക്ക് ഗവൺമെന്റ് എടിഎം കാർഡ് വിതരണം ചെയ്യും

ഫെഡറൽ ബാങ്കുമായി ചേർന്നാണ് എടിഎം കാർഡ് നൽകുക അണ്ടുമാസത്തിനകം കാർഡ് വിതരണം പൂർത്തിയാക്കാനാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത് ഇതോടെ ട്രഷറി ശാഖകളിൽ നേരിട്ട് എത്തിയാലേ പണമെടുക്കാൻ കഴിയൂ എന്ന തടസ്സം നീങ്ങും ജനങ്ങൾക്ക് പൊതുവേ അസ്വീകാരൃമായ നിലപാടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്തുടരുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു ആരുപറഞ്ഞാലും മോദിയുടെ ദുഷ്ചെയ്തികൾ മറച്ചുവയ്ക്കാ നാവില്ലെന്നും ബിജെപ്പി ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ കോൺഗ്രസ് പോരാട്ടം തുടരുമെന്നും ചെന്നിത്തല തിരുവനന്തപുരത്ത് പറഞ്ഞു വിശ്വാസികളെയും അവിശ്വാസികളെയും ഒരുപോലെ സംരക്ഷിക്കുന്ന പ്രസ്ഥാനമാണ് സി

ഐ എം എന്ന് സംസ്ഥാനസെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു കമ്യൂണിസ്റ്റുകാർ ഒരിക്കലും വിശ്വാസികൾക്കെ തിരല്ലെന്നും അദ്ദേഹം കണ്ണൂർ പാട്യത്ത് സി

എം ഓഫീസ് ഉദ്ഘാ ടന ചെയ്യവേ പറഞ്ഞു ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ പി വി സിന്ധു ഇന്ന് ജപ്പാന്റെ നൊസോമി ഒക്കുഹാരയെ നേരിടും ടൂർണ്ണമെന്റിൽ ഒക്കുഹാര മൂന്നാം സീഡും സിന്ധു അഞ്ചാം സീഡുമാണ് ബാസലിലാണ് മത്സരം മഴയെ തുടർന്ന് മാറ്റി വെച്ച നെഹ്റു ട്രോഫി ജലോത്സവം ശനിയാഴ്ച നടക്കും കടുത്ത പ്രതിസന്ധിയ്ക്കിട യിലാണ് ബോട്ടുക്സബ്ബുകൾ വീണ്ടും വള്ളങ്ങളുമായി എത്തുന്നത് ഈ മാസം പത്തിനായിരുന്നു ജലോത്സവം നടക്കേണ്ടിയിരുന്നത്

പെൺകുട്ടികളുടെ വിഭാഗത്തിൽ എറണാകുളവും കോട്ടയവും ഇന്നലെ സെമിയിൽ കടന്നു എറണാകുളം വയനാടിനെയും കോട്ടയം കണ്ണൂരിനെയുമാണ് തോൽപ്പിച്ചത്

എറണാകുളം ലോകമാന്യതിലക് തുരന്തോ എക്സ്പ്രസ് കൊച്ചുവേളി ലോകമാന്യതിലക് ഗരീബ്രഥ് എക്സ്പ്രസ് ഉൾപ്പെടെ ആറ് ട്രെയിനുകളാണ് റദ്ദാക്കിയത് നേത്രാവതി എക്സ്പ്രസ് പാലക്കാട് വഴി തിരിച്ചുവിട്ടു പാളത്തിലെ അറ്റകുറ്റപ്പണികൾ വേഗത്തിൽ പൂർത്തിയാ ക്കാൻ നടപടികൾ തുടങ്ങിയതായി റെയിൽവേ അറിയിച്ചു കനത്ത മഴയ്ക്ക് സാധൃതയുള്ളതിനാൽ നാളെ കോഴിക്കോട് വയ നാട് കണ്ണൂർ മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഇന്ന് കോഴിക്കോട് കണ്ണൂർ മലപ്പുറം ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്

വഴിക്കടവ് നാടുകാണി ചുരം റോഡ് അകമ്പാടം പാതാർ റോഡ് എന്നിവയ്ക്കാണ് കൂടുതൽ നഷ്ടം സ്വർണ്ണവിലയിൽ വീണ്ടും വർദ്ധന

രാജ്യാന്തര വിപണിയിലെ വില വർദ്ധനയാണ് ഇന്ത്യയിലും വില വർദ്ധിക്കാൻ കാരണം രാജ്യത്തെ ആദ്യ സംഗീത സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം ഇന്ന് കോഴിക്കോട്ടാരംഭിക്കും കോഴിക്കോട് മ്യുസീഷ്യൻസ് സോഷ്യൽ വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി വൈകിട്ട് ടൌൺഹാളിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ഗായകർ സംഗീത ഉപക രണ വിദഗ്ദ്ധർ സംഗീത സംവിധായകർ സംഗീത അധ്യാപകർ സംഗീത അവതാരകർ തുടങ്ങിയവർ ഉൾപ്പെട്ടതാണ് സൊസൈറ്റി അടുത്ത ഘട്ട ത്തിൽ സംസ്ഥാനം മുഴുവൻ പ്രവർത്തനം വ്യാപിപ്പിക്കാനാണ് സംഘ ത്തിന്റെ തീരുമാനം കോതമംഗലത്ത് മകന്റെ വെട്ടേറ്റ് അമ്മ മരിച്ചു നാഗഞ്ചേരി കല്ലിംഗപറമ്പിൽ കാർത്ത്യായനിയാണ് കൊല്ലപ്പെട്ടത് സ്ത്തു തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പൊലീസ് പറഞ്ഞു സംഭ വത്തിനുശേഷം മകൻ അനിൽകുമാർ പൊലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി പാകിസ്ഥാൻ രാഷ്ട്രീയത്തിലെ മലയാളി സാന്നിധൃവും മാധ്യമപ്ര വർത്തകനുമായ ബിയ്യത്ത് മൊഹിയുദ്ദീൻകുട്ടി എന്ന ബി

കുട്ടി നിര്യാ തനായി

ഇന്ന് പുലർച്ചെയായിരുന്നു അന്തൃം മല പ്പുറം തിരൂരിൽ ജനിച്ച ഇദ്ദേഹം ആറു പതിറ്റാണ്ടിലധികമായി പാകിസ്താ നിൽ വിവിധ രാഷ്ട്രീയ മുന്നേറ്റങ്ങളുടെ ഭാഗമായിരുന്നു